ത ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യരക്ഷാ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ഇന്ത്യ ഇന്ന് ആതിഥ്യം വഹിക്കും

ത തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ ടാറ്റാ കൺസൾട്ടൻസി സർവീസസിന്റെ പുതുതലമുറ വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ ധാരണാപത്രം ഒപ്പിടുന്നതിന് മന്ത്രിസഭ അനുമതി നൽകി

പി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് തൃശൂരിൽ തുടക്കം കുറിക്കും

എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിന് തോൽവി

ഇതുമായി ബന്ധപ്പെട്ട തപാൽ സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചൌരി ചൌരാ സംഭവത്തിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു രുര ഇന്ത്യൻ മഹാസമുദ്രമേഖലയിലെ രാജ്യരക്ഷാ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ഇന്ത്യ ഇന്ന് ആതിഥ്യം വഹിക്കും

പങ്കാളിത്ത രാഷ്ട്രങ്ങളിലെ പ്രതിരോധ വ്യവസായ മേഖലകൾ തമ്മിലെ സഹകരണം വിഭവ വിവര പങ്കുവെയ്ക്കൽ സമുദ്രനിരീക്ഷണം സഹകരണ മനുഷ്യാവകാശ ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ സമുദ്ര മലിനീകരണ പ്രതിരോധ നടപടി നൂതന സാങ്കേതികവിദ്യാ വികസനം തുടങ്ങിയവയും കൂടിക്കാഴ്ചയിൽ ചർച്ചചെയ്യും

രംഭ പരമ്പരാഗത വ്യവസായ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കൈത്തറി മേഖലയിൽ ഗവൺമെന്റ് മികച്ച ഇടപെടലാണ് നടത്തിയതെന്നും ബീഡി വ്യവസായത്തെ സംബന്ധിച്ച് പഠനം നടത്തി മേഖലയെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രും പൊലീസ് സ്റ്റേഷനുകൾ വൃത്തിയും വെടിപ്പുമുളളതാകേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മൂന്നാറിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലാ പൊലീസ് പരിശീലന കേന്ദ്രത്തിന്റെതടക്കം വിവിധ പൊലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ടെക്നോപാർക്കും ടാറ്റാ കൺസൾട്ടൻസി സർവീസസും തമ്മിലാണ് ധാരണാപത്രം

രുഭ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ മൂന്നു ദിവസമായി നടന്നുവന്ന ഭാവിവീക്ഷണത്തോടെ കേരളം കേരള ലുക്ക്സ് എഹെഡ് അന്തർദേശീയ കോൺഫറൻസ് സമാപിച്ചു

വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സാമൂഹ്യമാധ്യമങ്ങളിലൂടെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്താൻ സൈബർ ഡോമിന് നിർദേശം നൽകിയിട്ടുണ്ട് രംഭ കോവിഡ് സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘം തിരുവനന്തപുരം ജില്ലയിലെത്തി കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ ഡോ

രംഭ കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ച ജവഹർ നവോദയ വിദ്യാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മാർഗ്ഗ നിർദേശം പുറത്തിറക്കി

പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ

തൃശൂരിൽ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേയും നേതാക്കൾ പങ്കെടുക്കുന്ന ബി

പി സംസ്ഥാന നേതൃയോഗത്തിൽ ജെ പി നദ്ദ രാവിലെ സംബന്ധിക്കും തുടർന്ന് സംസ്ഥാനത്തെ സംഘ്പരിവാർ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഉച്ച കഴിഞ്ഞ് സാമുദായിക സംഘടനാ നേതാക്കളേയും അദ്ദേഹം കാണും വൈകീട്ട് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജെ പിനദ്ദ പങ്കെടുക്കും രുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു കോഴിക്കോട് തിരുവമ്പാടിയിൽ ഐശ്വര്യ കേരള യാത്രക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഡി എഫ് ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കിയ വൻകിട പദ്ധതികളല്ലാതെ ഒരു വൻകിട പദ്ധതിയും പിണറായി ഗവൺമെന്റ് പുതുതായി നടപ്പാക്കിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഐശ്വര്യ കേരള യാത്രയുടെ ജില്ലയിലെ പര്യടനം ഇന്ന് വൈകീട്ട് സമാപിക്കും സമാപന സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും

നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാണ് കുഞ്ഞാലിക്കുട്ടി ലോക്സഭാംഗത്വം രാജിവെച്ചത് ഇന്നലെ വൈകീട്ട് ലോക്സഭ സ്പീക്കറുടെ ചേംബറിൽ ലീഗ് എം പിമാരോടൊപ്പമെത്തിയാണ് അദ്ദേഹം രാജി നൽകിയത്

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി ഗോവയിൽ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്

സി ഗോവയെ നേരിടും രും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഉടനടി പരിഹാരം കാണുന്നതിന് സംഘടിപ്പിക്കുന്ന സാന്ത്വനസ്പർശം അദാലത്ത് ഇന്ന് കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ കോഴിക്കോട് താമരശ്ശേരി താലൂക്കുകളിലെ നടക്കും

മന്ത്രിമാരായ ടി

രാമകൃഷ്ണൻ എ

ശശീന്ദ്രൻ കെ ടി ജലീൽ എന്നിവർ പങ്കെടുക്കും

രുര കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്കുകളിലെ പരാതി പരിഹരിക്കാനായി ഇന്ന് കരുനാഗപ്പള്ളിയിൽ നടത്താനിരുന്ന സാന്ത്വന സ്പർശം അദാലത്ത് മാറ്റി വെച്ചു

രും മികച്ച തൊഴിലാളികൾക്കായി സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി ടി

പതിനഞ്ച് സ്വകാര്യ തൊഴിൽ മേഖലകളിലുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ പുരസ്കാരം ഒരു ലക്ഷം രൂപ വീതവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രും ഓൺലൈൻ മൾട്ടിലെവൽ മാർക്കറ്റിംഗ് രംഗത്ത് പുതിയ സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സപ്പൈകോ ഓൺലൈൻ കച്ചവട മേഖലയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മന്ത്രി പി

നവീകരണം പൂർത്തിയാക്കിയ കൊയിലാണ്ടി തുറയൂർ എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് മാറമ്പിള്ളി വയനാട്ടിലെ മേപ്പാടി സപ്പൈകോ സൂപ്പർമാർക്കറ്റുകൾ വീഡിയോകോൺഫറൻസിങ് മുഖേന ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുര മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര നിധി സമർപ്പണം നടത്തി ലോകത്തെ ശ്രീരാമഭക്തരുടെ ആഗ്രഹമാണ് പൂർത്തിയാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്ര നിർമാണ നിധി ശ്രീധരൻപിള്ള ആർ

ഗോപാലൻകുട്ടി മാസ്റ്റർക്ക് കൈമാറി രുര നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ സഹായിക്കാൻ രണ്ട് ഐ

നേരത്തെ പത്തനംതിട്ട കളക്ടറായിരുന്ന പി

നൂഹ് പാലക്കാട് കളക്ടറായിരുന്ന ഡി ബാലമുരളി എന്നിവരെയാണ് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരായി നിയമിച്ചത് ദേഴ ഇന്ന് ലോക കാൻസർ ദിനം ഓരോ വ്യക്തിയും കൂടെയുണ്ട് കൂടെ പ്രവർത്തിക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം